ഉൾക്കൊണ്ടുള്ള ബഹുമുഖ നവീകരണം ആവശ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

രാജ്യരക്ഷാമന്ത്രി ലഡാക്കും ശ്രീനഗറും സന്ദർശിച്ചും

സാമൂഹ്യവ്യാപനം സ്ഥിരീകരിച്ചു

ലക്ഷത്തിലേക്ക്

ഐക്യരാഷ്ട്രസഭയുടെ സാമ്പത്തിക സാമൂഹിക കൌൺസിലിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം വിശദാംശങ്ങളിലേക്ക് വോയ്സ് കോവിഡാനന്തരലോകത്ത് സമകാലീന ക്ലോക്ത്തെ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ബഹുമുഖ പ്രിന്റ്പീകരണ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ആവശ്യമാണെന്ന് പ്രിഷ്ടാന്മന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു

മറ്റ് വികസ്വര രാജ്യങ്ങളെ സഹായിക്കാനും ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണ് സ്വച്ച് ഭാരത് സ്ത്രീ ശാക്തീകരണം സാമ്പത്തിക ഉൾച്ചേർക്കൽ തുടങ്ങിയ പദ്ധതികളും എല്ലാവർക്കും വീട് ആയുഷ്മാൻഭാരത് പദ്ധതികളും ഇന്ത്യയെ മുന്നോട്ട് കോവിഡ് കാലത്ത് വിവിധ രാജ്യങ്ങൾക്ക് മരുന്ന് നയിക്കുന്നു

എൻ രക്ഷാസമിതിയിൽ താത്കാലിക അംഗത്വം നേടിയ ശേഷമുള്ള പ്രധാനമന്ത്രിയും ആദ്യ യു എൻ അഭിസംബോധന ആയിരുന്നു ഇത്

എൻ സാമൂഹിക സാമ്പത്തിക കൌൺസിലിനെ അഭിസംബോധന ചെയ്തത് ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഇന്നലെ ലഡാക്കും ശ്രീനഗറും സന്ദർശിക്കുകയായിരുന്നു അദ്ദേഹം ലോകത്തിന് സമാധാനത്തിന്റെ സന്ദേശമാണ് ഇന്ത്യ നൽകുന്നതെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ്സിംഗ് രാജ്യത്തിന്റെ അഭിമാനത്തിന് കോട്ടം വരുത്തിയാൽ സഹിക്കാനാവില്ലെന്നും കിഴക്കൻ ലഡാക്കിൽ സൈനികരെ അഭിസംബോധന് ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു

നിയന്ത്രണരേഖയിലെ സ്ഥിതിയും ഭീകരവാദപ്രവർത്തനങ്ങൾക്കെതിരെ കശ്മീർ താഴ്വരയിൽ നടക്കുന്ന വിജയകരമായ സേനാ നീക്കങ്ങളെക്കുറിച്ചും രാജ്യരക്ഷാമന്ത്രിയോട് ഉദ്യോഗസ്ഥർ ധരിപ്പിച്ചു നിയന്ത്രണരേഖയിൽ കർശന ജാഗ്രത പുലർത്തണമെന്നും ശത്രുക്കളുടെ ഏത് ആക്രമണത്തിനും ഉചിതമായ മറുപടി നൽകണമെന്നും ശ്രീ രാജ്ജ്നാഥ്സിംഗ് സൈനിക കമാൻഡർമാരോട് ആഹ്വാനം ചെയ്തു

സർക്കാരിന്റെ വിദേശനയത്തെ ചോദ്യം ചെയ്തുള്ള കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയ്ക്ക് മറുപടിയായാണ് അദ്ദേഹം ഇത് വ്യക്തമാക്കിയത്

ഐ ടി ക്കാറും പ്രവേശനത്തിന് അപേക്ഷിക്കാമെന്ന് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി സംയുക്ത പ്രവേശനബോർഡ് അറിയിച്ചു കോവിഡ് പശ്ചാത്തലത്തിൽ വിവിധ പരീക്ഷാ ബോർഡുകൾ പന്ത്രണ്ടാം ക്ലാസിലെ ചില പരീക്ഷകൾ പൂർണമായോ ഭാഗികമായോ റദ്ദാക്കിയ സാഹചര്യത്തിലാണ് ഐ

മെഡിക്കൽ ഓക്സിജന്റെ നിർമാണവും വിതരണവും ശേഖരണവും ഫലപ്രദമാണെന്നും കേന്ദ്രമന്ത്രി പിയൂഷ് ഗോയൽ പറഞ്ഞു

പെരുമാതുറ മുതൽ വിഴിഞ്ഞം വരെ രണ്ടാമത്തെ സോണും വിഴിഞ്ഞം മുതൽ ഊരമ്പ് വരെ മൂന്നാമത്തെ സോണുമാണ്

കോവിഡ് മിഷാമാരിക്കാലത്ത് ഇത്രയും തുക ജനങ്ങളിൽ എത്തിക്കാൻ പ്രി സാധിച്ചതിലൂടെ വിപണിയിൽ പണമെത്തിക്കാനും കഴിഞ്ഞു